ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് വയനാട്ടിലാണ്

രാഘവൻ കോഴിക്കോട് സിറ്റിംഗ് എം പി എംകെ രാഘവനെതിരായ ഒളിക്യമറാ വിവാദം സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ വരണാധികാരികൂടിയായ ജില്ലാ കലക്ടർ സാംബശിവ റാവു തെരഞ്ഞെടുപ്പ് കമ്മിഷന് സമർപ്പിച്ചു

കെ രാഘവന്റെ സാമ്പത്തിക ഇടപാടു കൾ അന്വേഷിക്കണമെന്നാവശൃപ്പെട്ട് ഡി

എഫ് ഐ നേ താവ് മുഹമ്മദ് റിയാസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തി നൽകി രാഘവൻ ലംഘിച്ചുവെന്നും പരാതിയിൽ പറയുന്നു

ജില്ലയിലെ മലമ്പുഴ പോത്തുണ്ടി മീങ്കര കാഞ്ഞിരപ്പുഴ ഡാമുകളിൽ നിന്നാണ് കുടിവെള്ള പദ്ധതികൾക്ക് ജലം ലഭ്യമാക്കുന്നത്